കോൺഗ്രസ്സിനെതിരെ വിമർശനവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കലാപത്തിൽ പങ്കെടുത്തവർക്ക് കോൺഗ്രസ് മുഖ്യമന്ത്രി പദം നൽകിയെന്നും ശ്രീ മ്യോദി

ചേതേശ്വർ പൂജാരക്ക് സെഞ്ചറി

പഞ്ചാബിലെ ഗുരുദാസ്പുരിൽ നടന്ന പൊതു യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു പ്രധ്യാനമന്ത്രി കാർഷിക വായ്പയുടെ പേരിൽ കോൺഗ്രസ്സ് കർഷകർക്ക് വലിയ വാഗ്ദാനങ്ങളാണ് നൽകിയത്തുന്നും ഒടുവിൽ അവരെ വഞ്ചിച്ചുവെന്നും പ്രധാനമ്ന്ത്രീ പ്റഞ്ഞു

ഒരു കുടംബത്തിന്റെ മാത്രം നിർദ്ദേശൃത്തിൽ ഈ കലാപത്തിൽ ഉൾപ്പെട്ടവരുടെ ഫയലുകൾ മൂടി ്വച്ചു എന്നാൽ എൻ ഡി എ ഗവൺമെന്റ് ഈ ഫയലുകൾ പുറത്തെടുക്കുകയും പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കുകയും ചെയ്തു അതിന്റെ ഫലം പുറത്തുവരികയും ചെയ്തു കർതാർപൂർ ഇടനാഴി നിർമ്മിക്കാനുള്ള എൻ ഡി എ ഗവൺമെന്റിന്റെ തീരുമാനം ചരിത്രപരമാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു

ശൂന്യവേളയിൽ കോൺഗ്രസിലെ വിപ്തവ് താക്കൂറിന്റെ ചോദൃത്തിന് മറുപടി പറയുകയായിരുന്നു മന്ത്രി

രാജ്യത്തെ അംഗീകൃത രഹസ്യാനേഷണ ഏജൻസികൾക്ക് ഏത് കമ്പ്യൂട്ടർ വിവരങ്ങളും പരിശോധിക്കാമെന്ന ഗവൺമെന്റ് ഉത്തരവാണ് അതിലൊന്ന് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഈ ഉത്തരവ് ജനങ്ങളുടെ സ്വകാര്യതയിലേക്കുള്ള കടന്നു കയറ്റമാണെന്നും അതിനാൽ ഉത്തരവ് റദ്ദാക്കണമെന്നും കോൺഗ്രസംഗം സുകേന്ദു ശേഖർ റോയ് ആവശ്യപ്പെട്ടു

ഉത്തരവ് ഭരണഘടനാ വിരുദ്ധവും രാജ്യത്തെ പോലീസ് സ്റ്റേറ്റാക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളതുമാണെന്നും അദ്ദേഹം ആരോപിച്ചു രാജ്യത്ത് രക്തബാങ്കുകളുടെ ദൌർലഭ്യത്തിൽ ജെഡിയുവിലെ കാകാഷാൻ പാർവിൻ ആശങ്ക രേഖപ്പെടുത്തി വിലപ്പെട്ട ജീവനുകൾ രക്ഷിക്കാൻ ബ്ലെഡ് ഓൺ വീൽ പരിപാടി എല്ലാ ജില്ലകളിലും കൊ ു വരണമെന്നും അവർ നിർദ്ദേശിച്ചു

ഇടപാടിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അന്നത്തെ ഫ്രഞ്ച് പ്രസിഡന്റ് ഫ്രാങ്കോയിസ് ഹോള യുമായി നടത്തിയ യോഗത്തിന്റെ മിനിട്ട്സ് ലഭ്യമാക്കുമോ എന്ന കോൺഗ്രസ് അംഗം ആനന്ദ ശർമ്മയുടെ ചോദൃത്തിനോട് സുഷമ സ്വരാജ് നൽകിയ മറുപടിയിൽ കോൺഗ്രസ് അംഗങ്ങൾ തൃപ്തരായില്ല സുപ്രീംകോടതി വിധിയോടെ അവസാനിച്ച വിവാദം വീ ും സൃഷ്ടിക്കാനുള്ള ശ്രമമാണ് പ്രതിപക്ഷം നടത്തുന്നതെന്ന് ശ്രീമതി സുഷമ പറഞ്ഞു തുടർന്നാണ് കോൺഗ്രസ് അംഗങ്ങൾ സഭയിൽ നിന്നും ഇറങ്ങി പോയത്

ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥരുടെ ആറ് സംഘങ്ങളാണ് രാവിലെ മുതൽ പരിശോധന ആരംഭിച്ചത് ചലച്ചിത്ര നിർമ്മാതാക്കളായ ശിവരാജ് കുമാർ പുനീത് രാജ്കുമാർ സുദീപ് യാഷ് വിജയ് റോക്ക് ലൈൻ വെങ്കടേഷ് സി ആർ മനോഹർ എന്നിവരുടെ ഓഫീസിലും വീടുകളിലുമാണ് ആദായനികുതി വകുപ്പ് ഉദ്യോഗസ്ഥർ മിന്നൽ പരിശോധന നടത്തിയത്

തുടർച്ചയായ നാല് സമ്മേളനങ്ങളിലാണ് ഇവർക്ക് വിലക്ക് ഏർപ്പെടുത്തിയത് സഭ ചേർന്ന് ഉച്ചയ്ക്ക് പിരിയുന്ന സമയം സഭയിൽ ബഹളം ഉ ാക്കുകയും നടുത്തളത്തിലിറങ്ങി മുദ്രാവാകൃം വിളിയ്ക്കുകയും ചെയ്ത അംഗങ്ങളുടെ പേരുകൾ സ്പീക്കർ പ്രഖ്യാപിക്കുകയായിരുന്നു

കെ യിലെ വി പനീർ സെൽവം സി ഗോപാലകൃഷ്ണൻ ആർ ഗോപാലകൃഷ്ണൻ റ്റി ഡി പി യിലെ ജയ് ദേവ് ഗള്ള അശോക് ഗജപതി രാജു രാം മോഹൻ നായിഡു നരസിംഹം തോട ജെ സി ദിവാകർ റെഡ്ഡി എന്നിവരെയാണ് സസ്പെന്റ് ചെയ്തത്

രാവിലെ സഭ ആരംഭിച്ചതു മുതൽ എ ഐ എ

കെ അംഗങ്ങൾ സഭയുടെ നടുത്തളത്തിലിറങ്ങി മുദ്രാവാക്യം വിളിയോടെ പ്രതീഷേധിക്കുകയായിരുന്നു കാവേരി നദിയിൽ ഡാം നിർമ്മിക്കു്നതിനെതിരെയായിരുന്നു അംഗങ്ങളുടെ പ്രതിഷേധം

നടപടിയെടുക്കുമെന്ന് സ്പീക്കർ അറിയിച്ചിട്ടും അംഗങ്ങൾ പ്രതിഷേധം തുടരുകയായിരുന്നു

രാജ്യത്തെ പൌരന്മാർക്കിടയിൽ ബഹിരാകാശ ശാസ്ത്രത്തെക്കുറിച്ചും സാങ്കേതികതയെ കുറിച്ചുമുള്ള അറിവ് പ്രചരിപ്പിക്കുന്നതിനാണ് ഗാലറികൾ നിർമ്മിക്കുന്നത്

ഹൈദ്രാബാദിലെ ബിർല ശാസ്ത്ര കേന്ദ്രത്തിലും മുംബൈയിലെ നെഹ്റു ശാസ്ത്രകേന്ദ്രത്തിലും ന്യൂഡൽഹിയിലെ പ്രഗതി മൈതാനത്തിലെ ദേശീയ ശാസ്ത്രകേന്ദ്രത്തിലുമായിരിക്കും തുടക്കത്തിൽ ഇത്തരം ഗാലറികൾ സജ്ജീകരിക്കുകയെന്ന് ബഹിരാകാശ ശാസ്ത്രവും മന്ത്രി പറഞ്ഞു സാങ്കേതികതയും വിവരിക്കുന്ന മാതൃകകളും പരസ്പര സമ്പർക്ക രീതികളും ഉൾപ്പെടുന്നവയാണ് ഗാലറികളെന്ന് മന്ത്രി കൂട്ടിച്ചേർത്തു

ഒരു സൈനികന് വീരമൃത്യു

ഗ്ന്തുതര്മായി പരിക്കേറ്റതിനെ തുടർന്ന് ഉദ്ധംപൂർ സൈനിക ആശുപത്രിയിൽ പ്രവേശിക്കപ്പെട്ടിരുന്ന സൈനികനാണ് മരിച്ചത് പരിക്കേറ്റ മറ്റ് ര ് സൈനികർ ശ്രീനഗറിലെ സൈനികാശുപത്രിയിൽ ചികിത്സയിലാണ് ഭീകരരുടെ സാന്നിധൃത്തെ സംബന്ധിച്ച് രഹസൃവിവരത്തെ തുടർന്ന് സുരക്ഷാ സംഘം നടത്തിയ തെരച്ചിലിന് ഒടുവിലായിരുന്നു ഏറ്റുമുട്ടൽ

നരേന്ദ്ര മോദി ഇന്ന് ഉ ദ്ഘാടനം ചെയ്തു

ശാസ്ത്രത്തെയും സാങ്കേതികവിദ്യയേയും ന വീനാശായങ്ങളേയും ജനങ്ങളുമായി ബന്ധപ്പെടുത്തുന്നതിലാണ് ഇന്ത്യ യുടെ യഥാർത്ഥ ശക്തിയെന്ന് പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു മുൻകാല ങ്ങളിലെ ഇന്ത്യൻ ശാസ്ത്രജ്ഞരായ ജെ

ബോസ് സി

രാമൻ മേ ഘനാഥ് സാഹ എസ് എൻ ബോസ് തുടങ്ങിയവരെല്ലാം ഏറ്റവും കുറ ഞ്ഞ വിഭവങ്ങൾ ഉപയോഗിച്ച് കൂടുതൽ പരിശ്രമങ്ങളിലൂടെയാണ്മ ജ നങ്ങളെ സേവിച്ചതെന്ന് അദ്ദേഹം പറഞ്ഞു ഉൾക്കാഴ്ചകളെ സാങ്കേതിക വിദ്യാ വികസനവുമായും രാഷ്ട്ര നിർമ്മാണ വുമായും ഇണക്കിച്ചേർത്തതിന്റെ സാക്ഷ്യപത്രമാണ് നൂറുകണക്കിന് ഇ ന്ത്യൻ ശാസ്ത്രജ്ഞരുടെ ജീവിതവും സംഭാവനകളുംമ ശ്രീ മോദി പ റഞ്ഞു നമ്മുടെ മുൻ പ്രധാനമന്ത്രിമാരായ ലാൽ ബഹാദൂർ ശാസ്ത്രീ അടൽ ബിഹാരി വാജ് പേയി എന്നിവരെ പ്രധാനമന്ത്രി അനുസ്സ്മരിച്ചു

കടകമ്പോളങ്ങൽ ഇന്നു തുറക്കുമെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി നേരത്തെ പ്രഖ്യാപിച്ചിരുന്നെങ്കിലും മിക്കയിടത്തും കടകമ്പോളങ്ങൾ അടഞ്ഞു കിടന്നു

എസ് ആർ ടി

പലയിടത്തും പ്രതിഷേധ പ്രകടനങ്ങൾക്കിടെ അക്രമ സംഭവങ്ങൾ ഉ ായി

കൃത്യമായി ആസൂത്രണം ചെയ്ത അക്രമമാണ് സംസ്ഥാനത്ത് നടക്കുന്നതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു

ഒരു തരത്തിലുള്ള അക്രമവും വച്ചു പൊറുപ്പിക്കാനാവില്ലെന്ന് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ വൃക്തമാക്കി എന്നാൽ കലാപത്തിന് ഇന്ധം പകരുന്നനയമാണ് മുഖ്യമന്ത്രിയുടേതെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല വിമർശിച്ചു

ഗോഹത്യയ്ക്കെതിരെ നടപടി എടുക്കുന്നില്ലെന്ന് ആരോപിച്ച് കഴിഞ്ഞമാസം മൂന്നിന് ബുലന്ദ് ഷെഹറിൽ ജനക്കൂട്ടം പൊലീസിന് നേരെ ആക്രമണം നടത്തുകയായിരുന്നു ആക്രമണത്തിൽ പൊലീസ് ഓഫീസർ സുബോദ് കുമാർ വെടിയേറ്റുമരിച്ചു